മലപ്പുറം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്

മഞ്ചേശ്വരം എറണാകുളം അരൂർ കോന്നി വട്ടിയൂർകാവ് നിയമസഭാമണ്ഡലങ്ങ ളിലായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് ഓരോ മണ്ഡലത്തി ലെയും അഞ്ച് ബൂത്തുകളിലെ വിവിപാറ്റ് സ്ലിപ്പുകളും നറുക്കെടുത്ത് എണ്ണും

ഔദ്യോഗിക ഫല പ്രഖ്യാപനം നാളെ ഉച്ചയോടെ ഉണ്ടായേക്കും കൽപ്പറ്റ ചുണ്ടേലിലെ ഭൂമിയിൽ ഡിസംബറിൽവയനാട് മെഡിക്കൽ കോളജ് നിർമ്മാണം തുടങ്ങുമെന്ന് മന്ത്രി കെകെ ശൈലജ അറിയിച്ചു ഒരു വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കും പുളിയാർമലയിലെയും തലപ്പുഴയിലെയും ഭൂമികളിൽ മെഡിക്കൽ കോളേജിന്റെ അനുബന്ധ സ്ഥാപനങ്ങൾ നിർമ്മിക്കുമെന്നും മന്ത്രി പറഞ്ഞു

സി ടി അക്കാദമിയും എഞ്ചിനിയറിങ്ങ് വിദ്യാർഥികളിലെ തൊഴിൽ വൈദഗ്ധ്യം മെച്ചപ്പെടുത്താ നായി നടപ്പാക്കുന്ന സ്കിൽ ഡെലിവറി പ്ലാറ്റ് ഫോം മുഖ്യ മന്ത്രി വൈകീട്ട് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും ശ്രീചിത്തിര തിരുനാൾ എഞ്ചിനിയറിങ്ങ് കോളജിൽ എസ് ഡി

കെ പ്ലാറ്റ് ഫോമിലൂടെയായിരിക്കും ഉദ്ഘാ ടനം

ഓരോ ദിവസവും രണ്ടുപേർ വീതം എത്താനാണ് നിർദേശം

ബാങ്ക് അക്കൌണ്ട് വിവ രങ്ങൾ ലഭിക്കുന്ന മുറക്ക് ശേഷിക്കുന്നവർക്കും നഷ്ടപ രിഹാരം അനുവദിക്കും സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴ്ക്ക് സാധൃതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് അറിയിച്ചു മലപ്പുറം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് ആയിരിക്കും കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലവിലുണ്ട്

മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്ന റിയിപ്പ് നൽകി

പൊലീസ് കാണിച്ച ഫോട്ടോകൾ ഇവരെത്തിയ വീടു കളിലെ ആളുകൾ തിരിച്ചറിഞ്ഞു ജയണ്ണ വേൽമുരുകൻ ലത സുന്ദരി ഉണ്ണിമായ എന്നിവർ സംഘത്തിൽ ഉണ്ടാ യിരുന്നുവെന്നാണ് വിലയിരുത്തൽ ശനിയാഴ്ച രാത്രി യാണ് മാവോയിസ്റ്റുകൾ വനാതിർത്തിയിൽ താമസിക്കു ന്നവരുടെ വീടുകളിലെത്തിയത് മന്ത്രി കെ ടി ജലീലിനെതിരെ ഒന്നിനു പിറകെ ഒന്നായി തെളിവുകൾ സഹിതം ആരോപണങ്ങൾ വരുന്ന സാഹചരൃത്തിൽ അദ്ദേഹത്തെ മന്ത്രിസ്ട്രഭയിൽനിന്ന് പുറത്താക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവ്ണമെന്ന് മുസ് ലിംലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

അക്കാദമിക കാര്യങ്ങളിൽ ഇടപെടാൻ മന്ത്രിക്ക് അവകാശം ഇല്ലെന്നും സർവ്വകലാശാലകളുടെ സ്വയംഭരണാവകാശത്തെ ബാധിക്കുന്ന നടപടിയാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും മജീദ് ആരോപിച്ചു കൊച്ചി കോർപറേഷന് എതിരായ വിമർശനത്തിൽ വിശദീ കരണം നൽകാൻ അഡ്വക്കറ്റ് ജനറൽ ഇന്ന് ഹൈക്കോ ടതിയിൽ ഹാജരാകും ഈ വിഷയത്തിൽ ഗവൺമെന്റ് നിലപാട് കോടതിയിൽ വ്യക്തമാക്കാൻ ഇന്നലെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നു സാധാരണ മനുഷ്യനായിരുന്ന ഗാന്ധിജി സ്വന്തം ദൌർബലൃങ്ങളെ നിശ്ചയദാർഢ്യത്താടെ മറികടന്നിരുന്നതായി തുഷാർഗാന്ധി അഭിപ്രായപ്പെട്ടു

ഇ എസ് കോഴിക്കോട് സംഘടിപ്പിച്ച ഗാന്ധിസ്മൃതി

സ്വയം മാറ്റത്തിനു തയ്യാറായാൽ രാജൃത്ത് ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാമെന്ന് ഗാന്ധിജിയുടെ പൌത്രൻ ഡോ

കാലിക്കറ്റ് സർവക ലാശാല സെമിനാർ കോംപ്ലക്സിൽ ഗാന്ധിയൻ ചെയറും ഹിസ്റ്ററി പഠന വിഭാഗവും സംയുക്തമായി സംഘടിപ്പിച്ച ഗാന്ധി ഇന്ന് ഇന്നലെ നാളെ ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗോകാനി അഴിമതിക്കെതിരെയും മൂല്യശോഷണത്തിനെതിരെയും പോരാട്ടം നടത്തണമെന്നും ആനന്ദ് ഗോകാനി ആവശൃ പ്പെട്ടു

എം

വാക്സിൻ ലഭിക്കാത്ത ഒരു കുഞ്ഞു പോലും രാജ്യത്തുണ്ടാകരുതെന്ന ലക്ഷ്യ ത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്

ഇന്ത്യൻ വ്യോമസേന കരയിൽ നിന്ന് കരയിലേക്ക് വിട്ടയ ക്കാവുന്ന ബ്രാഹ്മോസ് മിസ്സൈലുകൾ വിജയകരമായി പരീക്ഷിച്ചു

ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ട്രാക്ക് ഐലന്റിലായിരുന്നു മിസൈൽ പരീക്ഷണം തെക്കൻ കൾമീരിൽ ത്രാൽ മേഖലയിലെ ഏറ്റുമുട്ടലിൽ മൂന്ന് ജയ്ഷെ മുഹമ്മദ് ഭീകര പ്രവർത്തകരെ സുരക്ഷാ സേന വധിച്ചു ഇവരിൽ രണ്ട് പേർ വിദേശികളാണെന്ന് സംശയിക്കുന്നതായി ജമ്മു കാശ്മീർ പോലീസ് മേധാവി പറഞ്ഞു ഇവരിൽ നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തായും പോലീസ് കേന്ദ്രങ്ങൾ അറിയിച്ചു ബംഗ്ലാദേശിലെ ചിറ്റഗോംഗിൽ ഷെയ്ഖ് കമാൽ ഇന്റർനാഷണൽ ക്ലബ്ബ് കപ്പ് ടൂർണമെന്റിൽ ഗോകുലം കേരള എഫ്

ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട് ബോളിൽ ഗോവ ഇന്ന് ചെന്നൈയിൻ എഫ്സിയുമായി ഏറ്റുമുട്ടും വൈകീട്ട് ഏഴരക്ക് ഗോവയിലെ ജവഹർലാൽ നെഹ്റു സ് റ്റേഡിയത്തിലാണ് മത്സരം ഇന്നലെ ഒഡീഷയെ ജംഷ്ഡ് പൂർ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നു സംസ്ഥാന ഗവൺമെന്റിന്റെ ലൈഫ് ഭവന നിർമാണ പദ്ധതി രണ്ടാം ഘട്ടത്തിൽ പൂർത്തിയാക്കിയ ഇടുക്കി കോടിക്കുളം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീടുകളുടെയും താക്കോലുകൾ മന്ത്രി എം എം മണി വിതരണം ചെയ്തു

ഉടുമല്ലെ പേട്ട സ്വദേ ശികളായ അശോക് കുമാർ വരുൺകുമാർ എന്നിവരാണ് പിടിയിലായത്

ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ മാതൃകാപഞ്ചായത്ത് ജില്ലാതല മോണിറ്ററിങ് കമ്മിറ്റി യോഗത്തിലാണ് നിർദേശം മാലിന്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ഉടൻ പിഴ ഈടാക്കും

നാഗ ദൈവങ്ങളെ തൊഴുത് മണ്ണാർശാല വലിയമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ പുലർച്ച മുതൽ ഭക്തർ ക്ഷേത്രത്തിൽ എത്തി തുടങ്ങി മണ്ണാർ ശാല ആയില്യം പ്രമാണിച്ച് ആലപ്പുഴ ജില്ലയിൽ ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്

അവർക്ക് കുടിശ്ശിക സഹിതം പെൻഷൻ ഉടൻ നൽകണമെന്ന് കമ്മീ ഷൻ ജുഡീഷ്യൽ അംഗം പി

സംഭവത്തിൽ മേപ്പയൂർ പഞ്ചായത്ത് സ്ക്രട്ടറിയിൽ നിന്നും കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു കോഴിക്കോട് കൂടത്തായി കൊലപാതക പരമ്പര കേസിൽ അറസ്റ്റിലായ ജോളിയുടെ ഭർത്താവ് ഷാജുവിനെ ക്രൈം ബ്രാഞ്ച് സംഘം ഇന്ന് വീണ്ടും ചോദ്യം ചെയ്തേക്കും ഇതിനായി എസ്പി ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഷാജുവിന് അന്വേഷണ സംഘം നോട്ടീസ് നൽകി

കണ്ണൂർ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം ഇന്ന് തലശ്ശേരിയിൽ ആരംഭിക്കും

രാവിലെ ബി

ഹയർ സെക്കൻഡറി സ്കൂളിൽ എ

ഷംസീർ എം

എ ഉദ്ഘാടനം ചെയ്യും അഭയകേസിൽ പ്രതികളുടെ നുണപരിശോധന നടത്തിയ ഡോക്ടർമാരെ ഇന്ന് തിരുവനന്തപുരം സി ബി ഐ കോട തിയിൽ വിസ്തരിക്കും കേസിൽ വിചാരണ നേരിടുന്ന ഫാ തോമസ് കോട്ടൂർ സിസ്റ്റർ സെഫി എന്നിവരെ നുണ പരിശോധന നടത്തിയ ഡോ പ്രദീപ് ഡോ കൃഷ്ണവേണി എന്നിവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും ഭൂപതിവ് ചട്ടങ്ങളിൽ ഭേദഗതി ആവശ്യപ്പെട്ട് ഹൈറേഞ്ച് സംരക്ഷണസമിതി സംഘടിപ്പിച്ച ഉപവാസും ഇടുക്കി മുൻ രൂപതാധ്യക്ഷൻ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് ഉടൻ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ സമരങ്ങൾ തീവ്രമാകുമെന്ന് ബിഷപ്പ് മുന്നറിയിപ്പ് നൽകി നടി മഞ്ജുവാര്യർ ശ്രീകുമാർ മേനോനെതിരെ സംസ്ഥാന പൊലീസ് മേധാവിക്ക് നൽകിയ പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയതായി പൊലിസ് അറിയിച്ചു പരാതിയുമായി ബന്ധപ്പെട്ട ഏതാനും ഡിജി റ്റൽ രേഖകളും മഞ്ജുവാര്യർ ഡി ജി പിക്ക് നൽകിയിരു ന്നു പുതിയ കാലത്ത് നർമങ്ങങ്ങളെല്ലാം അശ്ലീലമായി മാറിയിരിക്കുകയാണെന്ന് പ്രൊഫ എസ് ശാരദകുട്ടി വില യിരുത്തി

കോഴിക്കോട് രാമദാസ് വൈദ്യർ അനുസ്മരണ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അവർ